ശതമാനമായി ഉയർന്നതായി കേന്ദ്ര ആരോഗ്യ മന്താലയം

മുൻകരുതൽ നടപടി അവലോകനം ചെയ്ത് പ്രപധാനമന്ത്രി

ഇതരസംസ്ഥാന തൊഴിലാളികളെ ട്രെയിനിൽ തിരികെ നാട്ടിൽ എത്തിക്കുന്നതിന് പുതുക്കിയ മാതൃകാ പ്രവർത്തന ചട്ടം പുറത്തിറക്കി

സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

അഞ്ച് വിമാനങ്ങൾ

അതേ സമയം കൊറോണ വൈറസിനുള്ള പ്രതിദിന പരിശോധന ഒരുലക്ഷം കവിഞ്ഞു

രോഗലക്ഷണമുള്ളയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ ഉടൻ ഓഫീസ് അധികൃതരെ വിവരമറിയിക്കണം

ജോലി സ്ഥലം അണുവിമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് രോഗലക്ഷണമുള്ളയാളെ കണ്ടെത്തിയാൽ അവരെ ജോലിസ്ഥലത്തിലെ മറ്റൊരു മുറിയിലേക്ക് മാറ്റണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കഴിയുന്നത്ര പേർക്ക് പ്ടിടു്കളിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യമൊരുക്കണ്മെന്നും നിർദേശമുണ്ട്

ജനങ്ങൾക്ക് അവശൃ സാധനങ്ങളുടെ ലഭൃത ഉറപ്പാക്കണമെന്നും ശ്രീ

ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ഉം പുൻ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിലവിലെ സാഹചര്യവും ദേശീയ ദുരന്ത പ്രതികരണ സേന തയ്യാറാക്കിയ രക്ഷാ ദൌത്യത്തിന്റെ രൂപരേഖയും ശ്രീ മോദി അവലോകനം ചെയ്തു

കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്

അടുത്ത ഏതാനും മണിക്കൂറുകളിൽ സൂപ്പർ സൈക്ലോണിൽ നിന്നും തീവ്രത കുറഞ്ഞ് അതിതീവ്ര ചുഴലിക്കാറ്റായി ഉം പുൻ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു

പ്രധാൻ

ഇതനുസരിച്ച് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും ആവശ്യപ്രകാരം എവിടേക്കാണ് സർവ്വീസ് നടത്തേണ്ടതെന്ന് റെയിൽവെ മന്ത്രാലയം തീരുമാനിക്കും പ്രത്യേക ശ്രമിക് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർക്കു രോഗലക്ഷണമില്ലെന്ന് സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണം സ്റ്റോപ്പുകളും സമയക്രമവും തീരുമാനിക്കുന്നത് റെയിൽവെയാണ്

തൊഴിലാളികളുടെ യാത്ര സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണ മെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു ട്രെയിൻ ബസ് സർവീസുകൾ നടത്തുന്നതു സംബന്ധിച്ച അവൃക്തതയും ഊഹാപോഹങ്ങളും തൊഴിലാളികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇക്കാരൃത്തിൽ കൂടുതൽ വൃക്തത ഉറപ്പാക്ക ണമെന്നും കേന്ദ്രം നിർദേശിച്ചു

രാജ്യത്ത് ഏറ്റവുമധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര

കണ്ണൂർ അഞ്ച് മലപ്പുറം മൂന്ന് പത്തുന്നുംതിട്ട ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ട്ടാർോരുത്തർക്കു വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇന്ന് ആർക്കും രോഗമുക്തി ഇല്ല വിദേശത്ത് നിന്ന് വന്ന നാല് പേർക്കും സംസ്ഥാനത്തിന് പുറത്ത് നിന്ന് വന്ന എട്ട് പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്

ഗൾഫിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതാൻ അവസരമൊരുക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു

സൌദി അറേബ്യ യു

ഇ കുവൈറ്റ് കാലാലംപൂർ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രവാസികളെയാണ് നാട്ടിലെത്തിക്കുന്നത് രണ്ട് വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത്

ആപ്പിലൂടെ ശേഖരിച്ച ഡാറ്റ ഉപയോഗിക്കുന്നതിനും കൈമാറുന്നതിനും പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തയോട് പറഞ്ഞു

ഇതര സംസ്ഥാനത്തൊഴിലാളി കളുടെ യാത്രയുമായുംബ്സ്പ്പെട്ടാണ് ഈ ചിത്രം തെറ്റായി പ്രചരിച്ചത് ഈ ചിത്ര് പഴയതാണെന്നും ഇന്ത്യയിലെ ദൃശ്യമല്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി